ഇന്ന് കേരളത്തിൽ

ഇന്തോനേഷ്യാ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ഫൈനലിൽ ഇന്ന് ഇന്ത്യയുടെ സൈനാ നെഹ്വാൾ ലോക ചാമ്പ്യൻ കരോ ളിനാ മാരിനുമായി ഏറ്റുമുട്ടും

ഇരു നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും

രാജാജി മെഡിക്കൽ കോളേജിന്റെയും തഞ്ചാവൂർ തിരുനെൽവേലി മെഡിക്കൽ കോളേജുകളുടെയും സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും

പെട്രോ കെമിക്കൽ കോംപ്ലക്സിന്റെ നിർമ്മാണോദ്ഘാടനവും അദ്ദേഹം നിർവ്വഹിക്കും

ജി ബോട്ടിലിംഗ് പ്ലാന്റിന്റെ സ്റ്റോറേജ് ഫെസിലിറ്റി ഉദ്ഘാടനവും ഏറ്റുമാനൂർ സ്കിൽ ഡെവലപ്മെന്റ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നിർമ്മാണ ഉദ്ഘാടനം എന്നിവയാണ് പ്രധാനമന്ത്രിയുടെ മറ്റ് പരിപാടികൾ പിന്നീട് തൃശ്ശൂരിൽ പൊതു സമ്മേളനത്തിലും പങ്കെടുക്കും

ആകാശവാണി ദൂരദർശൻ എന്നിവയുടെ യൂട്യൂബ് ചാനലിലും പരിപാടി ലഭ്യമാണ്

ഇന്ത്യൂടെ എഴുപതാമത് റിപ്പ ബ്ലിക്ക് ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് ഇന്നലെ വൈകുന്നേരം കൊളം ബോയിൽ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയം സംഘടിപ്പിച്ചു

ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വിനോദ സഞ്ചാരികൾ ശ്രീലങ്കയിൽ എത്തുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യോമയാന മേഖലയിലെ സഹകരണമാണ് ഇത് സാധ്യമാക്കിയത്

ഇരു രാജ്യങ്ങളും തമ്മിൽ സാമ്പത്തിക വ്യാപാര മേഖലകളിലെ സഹകരണവും ഉന്നത തല പ്രതിനിധികളുടെ സന്ദർശനവും കഴിഞ്ഞ വർഷം വർദ്ധിച്ച തായി അദ്ദേഹം പറഞ്ഞു

കബീർ ഹാഷിം പറഞ്ഞു

രാജ്യത്തെ വളർച്ചയും സമ്പൽ സമൃദ്ധിയും വർദ്ധിക്കട്ടെന്ന് അദ്ദേഹം ട്വിറ്ററിൽ അറിയിച്ചു

ദേശസ്നേഹവും രാജ്യത്തിന്റെ വ്യത്യസ്തങ്ങളായ സാംസ്കാരിക പാരമ്പര്യവും പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഭാരത് പർവ് സംഘടിപ്പിക്കുന്നത്

യുവാക്കൾ അവരുടെ ഊർജ്ജവും നൂതനാശയങ്ങളും കൊണ്ട് ഇന്ത്യയെ ഒന്നാമത് എത്തിക്കുമെന്നും ഒരു വെബ്സൈറ്റിന് അഭിമുഖം നൽകവെ ശ്രീ

സ്റ്റാർട്ടപ്പുകളുടെ നിർവചനം തന്നെ ഗവൺമെന്റ് പുനർനിർണയിച്ചു

എ ഗവൺമെന്റ് കൊണ്ടുവന്ന നേട്ടങ്ങൾ ആർക്കും കാണാനാവുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

മോദി പറഞ്ഞു

കേരള നിയമസഭ സാക്ഷരതാ മിഷ്യൻ അതോറിറ്റി പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്നിവയുടെ ആഭിമൂഖ്യത്തിൽ ചേർന്ന് സംഘടിപ്പിച്ച ഭരണഘടനാ സംരക്ഷണ് സ്ൻഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നവോത്ഥാനമൂല്യങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമം സമൂഹത്തിൽ നടക്കുന്നത് ഗൌരവമായി കാണണമെന്നും ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ബാധ്യത ജനങ്ങൾക്കാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ടൂർണമെന്റിൽ നിലവിൽ ഇന്ത്യൻ താരങ്ങളിൽ സൈന മാത്രമാണുള്ളത് വെള്ളിയാഴ്ച നടന്ന കാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ ഇന്ത്യയുടെ പി

ബാബാസാഹേബ് അംബേദ്കറുടെയും ഗൌതമബുദ്ധന്റെയും ജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൂടെ റെയിൽവേ പ്രത്യേക യാത്ര സംഘടിപ്പിക്കുന്നു

അംബേദ്കറുടെയും ബുദ്ധന്റെയും ജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൂടെയാണ് യാത്ര

ഡോക്ടറുടെ സേവനം ഉൾപ്പെടെയുള്ള സൌകര്യവും യാത്രികർക്കായി റെയിൽവെ ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

താലി ബാനുമായി ഖത്തറിൽ നടന്ന സമാധാന ചർച്ചകൾ വളരെയധികം പ്രയോജനം ചെയ്തതായി അഫ്ഗാനിസ്ഥാനിലെ പുനർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന യു

പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിർണ്ണായകമായ തീരുമാനങ്ങളാണ് ചർച്ചയിൽ ഉണ്ടായത് അമേരിക്കൻ മണ്ണിൽ ആക്രമണം നടത്തില്ലെന്ന് താലിബാൻ ഖത്തറിൽ നടന്ന നാലാം വട്ട ചർച്ചയിൽ ഉറപ്പുനൽകി

രാജ്യത്തിന്റെ തെക്കുകിഴക്കൻ ഭാഗത്തിൽ ഇരുമ്പയിര് നിർമ്മാണ സമുച്ചയത്തിന് സമീപമുള്ള കാലഹരണപ്പെട്ട അണക്കെട്ടാണ് തകർന്നത് ബ്രസീലിലെ വമ്പൻ സ്വകാര്യ ഖനന കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണത്

സൈനൃത്തിന്റെ നേതൃത്വത്തിൽ രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തുടരുകയാണ്